പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി ഇന്നലെ വൈകീട്ട് അവസാനിച്ചതോടെയാണ് മത്സരരംഗത്തെ ശേഷിക്കുന്ന സ്ഥാനാർത്ഥിക ളുടെ എണ്ണം വൃക്തമായത്

കാസർകോട് വയനാട് പൊന്നാനി ആറ്റിങ്ങൽ മണ്ഡലങ്ങ ളിൽ രണ്ടുപേർ വീതവും കണ്ണൂർ വടകര കോഴിക്കോട് പാലക്കാട് ആല ത്തൂർ തൃശൂർ എറണാകുളം കൊല്ലം എന്നിവിടങ്ങളിൽ ഓരോരുത്തരുമാണ് പത്രിക പിൻവലിച്ചത്

ജ്യോതിഷികളും പ്രവചനം നടത്തുന്നവരും തെരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി പറയുന്നത് മാതൃകാ പെരുമാ റ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഇത്ത രക്കാർക്കെതിരെ പ്രസക്ത നിയമപ്രകാരം നടപടി ഉണ്ടാകുമെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി

ദർവ്വട്ടെഴ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന കോൺഗ്രസുകാർ കാലുമാറില്ലെന്ന് പരസ്യം നൽകേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്തെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ കുറ്റപ്പെടുത്തി

ജെ പിക്കെതിരെ ആത്മാർത്ഥതയോടെ അണിനിരക്കാൻ അവർക്കാകുന്നില്ലെന്നും പിണറായി പറഞ്ഞു ഇടതുപ ക്ഷത്തെപ്പറ്റി പറയേണ്ടതെല്ലാം കോൺഗ്രസ് അധ്യക്ഷന് പറയാമെന്നും മുഖ്യ മന്ത്രി അഭിപ്രായപ്പെട്ടു എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങ ളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ദർശ്ശേദ ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന കേരള കോൺഗ്രസ് ചെയർമാൻ കെ എം മാണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് മാണി

ജെ പിയെ സഹായിക്കുന്ന നയമാണ് കോൺഗ്രസിന്റേതെന്ന് സി

എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാ മചന്ദ്രൻ പിള്ള പറഞ്ഞു പാലക്കാട്ട് എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് ധാരണ ഇല്ലാതാക്കിയത് കോൺഗ്രസിന്റെ നയങ്ങളാണെന്ന് രാമചന്ദ്രൻപിള്ള വ്യക്തമാക്കി രദ്ദേഷ്ടങ റഫാൽ അഴിമതിയെപ്പറ്റി പിണറായി വിജയൻ മിണ്ടാത്തത് ലാവ്ലിൻ ഭ യം കൊണ്ടാണെന്ന് കെ

സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാല ക്കാട്ട് ആരോപിച്ചു കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് ആരോപിക്കുന്നവർ ബംഗാളിൽ സി

എം ഓഫീസുകൾവരെ ബി ജെ പിയുടേതായി മാറുന്നത് അറിയുന്നില്ലേ എന്ന് മുല്ലപ്പള്ളി ചോദിച്ചു

ഡി എയുടെ പ്രകടനപത്രിക അടവുതന്ത്രം മാത്രമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി അഭിപ്രായപ്പെട്ടു ശബരിമലയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു കൊലപാതക രാഷ്ട്രീയത്തിന് എതിരായ വിധി യെഴുത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ആന്റണി വിലയിരുത്തി

ജെ പിക്ക് ബദലായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനാധിപത്യ മതനിര പേക്ഷ മുന്നണി അധികാരത്തിൽ വരുമെന്ന് സി

ഐ ദേശീയ നിർവാ ഹക സമിതി അംഗം പന്ന്യൻ രവീന്ദ്രൻ മാവേലിക്കരയിൽ പറഞ്ഞു

ജെ പിക്ക് ബദൽ കോൺഗ്രസല്ലെന്നും പന്ന്യൻ അഭിപ്രായപ്പെട്ടു

മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ഇതുസംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് ഓഫീസറെ സമീ പിച്ചത്

കമ്മീഷൻ ഉന്നയിച്ച സംശയങ്ങളിലാണ് ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകുന്നത്

ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ റാലിയിൽ വടിവാൾ കണ്ടെത്തിയെന്ന വാർത്തയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ സംസ്ഥാന പൊലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് ഇത്തരം നടപടികൾ വിഘാതമുണ്ടാക്കുമെന്ന് മുഖ്യ തെര ഞ്ഞെടുപ്പ് ഓഫീസർ ആശങ്കയറിയിച്ചു സംഭവത്തിൽ നിയമാനുസൃത നട പടിയെടുക്കണമെന്നും ടിക്കാറാം മീണ ആവശ്യപ്പെട്ടു

എ സ്ഥാനാർഥി ജില്ലാ കലക്ടർക്ക് മറുപടി നൽകി ദൈവത്തിന്റെ പേരോ മതചിഹ്നമോ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയിട്ടില്ല

ശബരിമല ക്ഷേത്രം അയ്യപ്പൻ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം മറുപടിയിൽ വൃക്തമാക്കി

സി സി സ്റ്റേറ്റ് കോർഡിനേറ്റർ മനോജ് കൊക്കാടിനോട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം തേടി

രുട്ടിട്ട്ട്ട്ട്ട്ട കൊല്ലം പത്തനാപുരത്ത് അനധികൃതമായി സ്ഥാപിച്ച പ്രചാരണ ബോർഡും കൊടിതോരണങ്ങളും മാറ്റാൻ ശ്രമിച്ച ആന്റി ഡിഫേസ്മെന്റ് സ്കാഡിനെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരു എൽ ഡി എഫ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് പുനലൂർ കോടതിയിൽ ഹാജരാക്കി സംഭ വത്തോട് ബന്ധപ്പെട്ട് രണ്ടുപേർ ഒളിവിലാണ്

ഈ ബൂത്തുകളിൽ കൂടുതൽ പൊലീസിനെയും അർദ്ധസേനാ വിഭാഗത്തെയും വിന്യസിക്കും പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും ഏർപ്പെ ടുത്തും

വയനാട് ഒഴികെ മറ്റ് ജില്ലകളിൽ താപ നില മൂന്ന് ഡിഗ്രിവരെയും ഉയർന്നേക്കും

കോഴിക്കോട് ജില്ലയിൽ പത്തുപേർ ചികിത്സ തേടി

ഇരു ടീമുകളും ഓരോ ഗോൾവീതം നേടി

ഇന്ന് അസം പഞ്ചാബിനെയും കർണാടക മഹാരാഷ്ട്രയെയും നേരിടും രദേഷ്ടെടു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് ആറുവി ക്കറ്റിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു

ജയ്പ്പൂരിൽ രാത്രി എട്ടിനാണ് മത്സരം ദർവ്വെട്ടറ ഒളിംമ്പിക്സ് ഫുട്ബോൾ യോഗ്യത നിർണയ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം മ്യാൻമറിനെ നേരിടും

ഏഷ്യൻ യോഗ്യതയുടെ രണ്ടാം റൌണ്ടിൽ ജയിക്കുന്ന ടീമിന് അടുത്ത റൌണ്ടിലേക്ക് മുന്നേറാം

സി ഗോവയെ നേരിടും രാത്രി എട്ടരയ്ക്കാണ് മത്സരം രുട്ടിട്ടിടു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ജലന്ധർ രൂപത മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ കുറ്റ പത്രം സമർപ്പിക്കും പാലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് രണ്ടാ യിരം പേജ് വരുന്ന കുറ്റപത്രം സമർപ്പിക്കുന്നത്

ബലാത്സംഗം അടക്കം അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്

കെ ബാലന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ചർച്ച നടക്കും നഗരസഭയും മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥിതിചെയ്യുന്ന കൊടുമ്പു പഞ്ചാ യത്തും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനാൽ ഒന്നര മാസത്തോളമായി നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ചിരിക്കുകയാണ് രുവെട്ടിടു തൊടുപുഴയിൽ മർദ്ദനത്തിനിരയായി മരിച്ച ഏഴുവയസ്സുകാരന്റെ പിതാ വ് ഒരുവർഷം മുമ്പ് മരിച്ച സംഭവത്തിൽ പുനരനേഷണം ആവശ്യപ്പെട്ട് മുത്ത ച്ഛൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണ മെന്നാണ് പരാതിയിലെ ആവശ്യം

രുട്ട്ട്ട്ട്ട്ട്ട്ട കഞ്ചാവ് നൽകിയ ശേഷം പത്താംക്ലാസിലെ ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗികപീഡനത്തിന് ഉപയോഗിച്ച ആറുപേരെ മലപ്പുറം കൽപ്പ കഞ്ചേരിയിൽ പൊലീസ് പിടികൂടി

പതിനഞ്ചംഗ സംഘത്തിലെ എല്ലാവരെയും തിരിച്ചറിഞ്ഞതായി കൽപ്പകഞ്ചേരി പൊലീസ് അറിയിച്ചു അറസ്റ്റിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ദർവ്വെട്ടറ മലപ്പുറം കാളികാവിൽ അന്ധവിശ്വാസത്തിന്റെ പ്പേരിൽ ചികിത്സ നിഷേ ധിക്കപ്പെട്ട നാല് കുട്ടികളെയും അമ്മയെയും ചൈൽഡ്ലൈൻ പ്രവർത്ത കർ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി കാളികാവ് പൂങ്ങോട്ട് നാല്സെന്റ് കോള നിയിലെ ഒമ്പതും ആറും മൂന്നും രണ്ടും വയസ്സുകാരായ കുട്ടികളെയും അവ രുടെ അമ്മയെയുമാണ് മൈലപ്പുറം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയത് ദൃശ്ശ്മെ പത്തനംതിട്ട ജില്ലയിലെ ഡാമുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവ ശ്യപ്പെട്ട് പൊലീസ് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി ജില്ലയിലെ പത്ത് ഡാമു കളിലും പരിശോധന നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പെരു ന്തേനരുവി വൈദ്യുത പദ്ധതിയുടെ ഡാം കഴിഞ്ഞമാസം സാമൂഹ്യവിരുദ്ധർ തുറന്നുവിട്ടിരുന്നു ദർവ്വെട്ടറ പെരിന്തൽമണ്ണക്ക് സമീപം ദേശീയപാതയിൽ രാമപുരം പനങ്ങാങ്ങര യിൽ കാർ ലോറികൾക്കിടയിൽ അകപ്പെട്ട് രണ്ടുപേർ മരിച്ചു മൂന്നുപേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി പത്തുമണി യോടെ ടാങ്കർ ലോറിയെ മറികടക്കുന്നതിനിടെ കാർ എതിരെവന്ന ലോറിയുടെ ഇടയിൽ പെടുകയായിരുന്നു താഴെക്കോട് അരക്കുപറമ്പ് മാട്ടറയ്ക്കൽ പട്ട ണത്ത് ഹംസപ്പ മകൻ ബാദുഷ എന്നിവരാണ് മരിച്ചത്

രണ്ടുവർഷം ഐ

സംസ്കാരം ഇന്ന് രാവിലെ പത്തിന് മാവൂർറോഡ് ശ്മശാനത്തിൽ നടക്കും